ഡിഫൻസ് അക്വസീഷൻ കൌൺസിലിന്റെ അനുമതി

യോഗൃത മത്സരത്തിൽ ഇന്തൃ ഇന്ന് ഇറ്റലിയെ നേരിടും

ധനമന്ത്രി അരുൺ ജയ്റ്റ്ലിക്ക് പകരം ധനമന്ത്രാലയത്തിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി പീയുഷ് ഗോയലാണ് ബജറ്റ് അവതരിപ്പിക്കുക

ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇടക്കാല ബജറ്റാണ് ഇന്ന് അവതരിപ്പിക്കുകയെന്ന് കേന്ദ്രധനമന്ത്രാലയം അറിയിച്ചു നാലര വർഷം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അവസാന ബജറ്റുകൂടിയാണിത് ബജറ്റിൽ ജനക്ഷേമപരമായ നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്ന് കരുതുന്നു

ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി പാർലമെന്റിന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഏതുവിഷയത്തിലും തുറന്നു ചർച്ചയ്ക്ക് ഗവൺമെന്റ തയ്യാറാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് എന്നീ ബാങ്കുകൾക്കാണ് ഇളവ് നൽകിയത് നഷ്ടത്തിലായ ബാങ്കുകളെ ഉയർത്താൻ വായ്പാ വളർച്ച സഹായിക്കുമെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പിഴവു തിരുത്തൽ നടപടികളിലൂടെ നീങ്ങുന്ന ഈ ബാങ്കുകൾക്ക് ഇതോടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനാകും ബാങ്ക് ഓഫ് ഇന്ത്യയും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയും നിഷ്ക്രിയ ആസ്തികൾ കുറച്ചു കൊണ്ടു വരാനുള്ള ശ്രമത്തിലാണ് ഈ സാമ്പത്തിക വർഷത്തിൽ നിഷ്ക്രിയ ആസ്തികൾ ആറു ശതമാനമായി കുറക്കാനുള്ള നിബന്ധനകൾ കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്

കേന്ദ്ര ഭവന നഗരകാര്യ സെക്രട്ടറി ശ്രീ

വെങ്കയ്യ നായിഡു ഇന്ന് കേരളത്തിലെത്തും

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

വി തോമസ് എം

യുടെ ഫണ്ടിൽ നിന്നും വിദ്യാധനം പദ്ധതി യിൽ ഉൾപ്പെടുത്തി നൽകുന്ന ഇ ബുക്ക് റീഡറുകളുടെ വിതര ണോദ്ഘാടനം ഉപരാഷ്ട്രപതി ഇന്ന് കൊച്ചിയിൽ നിർവ്വഹിക്കും നാളെ കോട്ടയത്തേക്ക് തിരിക്കുന്ന അദ്ദേഹം ഒരു സ്ഥകാര്യ ചടങ്ങിൽ സംബന്ധിക്കും

ദക്ഷിണ്മേഖലാ എഡിജിപി അനിൽകാന്ത് ജില്ലാ കലക്ടർ എസ് കാർത്തികേയൻ സിറ്റി പൊലീസ് കമ്മിഷണർ പി

മധു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ആശ്രാമം ഹെലിപ്പാഡിലും ഓഡിറ്റോറിയത്തിലും ഒരുക്കങ്ങൾ വിലയിരുത്തി പൊലീസ് വാഹനവ്യൂഹത്തിന്റെ ട്രയൽ റണ്ണും ഹെലികോപ്റ്ററുകളുടെ നിരീക്ഷണ പറക്കലും ഇന്നലെ നടത്തിയിരുന്നു ആശ്രാമം യൂനുസ് കൺവൻഷൻ സെന്ററിലാണ് സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടന ചടങ്ങ്

ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കണക്കിലെടുത്തു കൊല്ലം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്നു സിറ്റി പൊലീസ് കമ്മിഷണർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

നേരിട്ടുള്ള വിദേശ നിക്ഷേപമുള്ള കമ്പനികൾക്കാണ് ഇക്കാര്യം ബ്രാധകമാകുക ഇന്ന് വരെയാണ് ഇ കൊമേഴ്സ് പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ കമ്പനികൾക്ക് സമയം നൽകിയിട്ടുള്ളത് ്സമയപരിധി നീട്ടി നൽകണമെന്ന് കമ്പനികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് വൃവസായ ആഭ്യന്തര വ്യാപാര പ്രോത്സാഹന് വകുപ്പ് വൃക്തമാക്കി എന്നാൽ തീയതി നീട്ടില്ലെന്ന നിർദ്ദേശവുമായി മുന്നോട്ടു പോകാനാണ് വകുപ്പിന്റെ തീരുമാനം ഓൺലൈൻ വ്യാപാരം സംബന്ധിച്ച നിയമങ്ങൾ കഴിഞ്ഞ ഡിസംബറിലാണ് ഗവൺമെന്റ് ശക്തമാക്കിയത് ഓൺലൈൻ ചൂതാട്ടവും ഇതോടനുബന്ധിച്ച് വിലക്കിയിരുന്നു

കേന്ദ്ര ഗവൺമെന്റിന്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട് പ്രതിരോധ മന്ത്രാലയം നടപ്പാക്കുന്ന രണ്ടാമത്തെ പ്രോജക്ടാണിതെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ ട്വിറ്ററിൽ പറഞ്ഞു കരസേനയ്ക്ക് വേണ്ടി അയ്യായിരം മിലൻ ആന്റി ടാങ്ക് മിസൈലുകൾ വാങ്ങാനും സമിതി അംഗീകാരം നൽകി

പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹമ്മൂദ് ഖുറേഷിയും വിഘടനവാദി മിർവെയ്സ് ഉമർ ഫാറൂഖും തമ്മിൽ നടത്തിയ ടെലഫോൺ സംഭാഷണം സംബന്ധിച്ചു പ്രതികരണത്തിനിടെ ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രവീഷ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത് ഭീകരപ്പാദത്തിനെതിരെ പാകിസ്ഥാൻ നടപടി എടുക്കേണ്ട സമയും അതിക്രമിച്ചിരിക്കുന്നു എന്നാൽ ഇതുവരെ പാകിസ്ഥാൻ ഇക്കാരുത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്ന വികസന പ്രവർത്തന്ങ്ങൾ ഇന്ത്യ നിരീക്ഷിച്ച് വരികയാണെന്നും ശ്രീ

ഇന്നലെ ന്യൂഡൽഹിയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നോട്ട് പിൻവലിക്കലിനു ശേഷം തൊഴിലില്ലായ്മ നാൽപ്പതു വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണെന്ന മാധ്യമവാർത്തകൾ വന്നു ഇത് പരിശോധനയ്ക്കു വിധേയമാക്കിയതിനു ശേഷമുള്ള റിപ്പോർട്ടല്ലെന്നും ശ്രീ

തൊഴിൽ സംബന്ധിയായ ആദ്യപാദ റിപ്പോർട്ടുകൾ മാർച്ചിൽ പുറത്തു വിടുമെന്നും അദ്ദേഹം പറഞ്ഞു

ഏകതാ പ്രതിമയുടെ മാതൃകയും മഹാത്മാഗാന്ധിയുടെ ആദർശങ്ങൾ വെളിവാക്കുന്ന ഗാന്ധിഗ്രാം പെയിന്റിങ്ങുകളും ഭാരത് പർവ്വിന്റെ മുഖ്യ ആകർഷണങ്ങളായി

എല്ലാവരും യാത്ര ചെയ്യുകയും വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണമെന്ന് സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞു

ഐ

ഹെലികോപ്റ്റർ ഇടപാടു കേസിൽ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായി രാജീവ് സക്സേനയും കൂട്ടാളിയെയും ഡൽഹി കോടതി നാല് ദിവസത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് കസ്റ്റഡിയിൽ വിട്ടു ഇടനിലക്കാരൻ ദീപക് തൃൽവാറിനെയും ഏഴ് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട് രണ്ട് വൃത്യസ്ത അഴിമതി കേസുകളെ തുടർന്ന് സക്സേനയെയും തൽവാറിനെയും ഇന്നലെയാണ് യു

ഇന്ത്യയ്ക്ക് കൈമാറിയത് രാജീവ് സക്സേനയും ഭാര്യയും ഇവരുടെ ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും അഴിമതി കേസിൽ നേരിട്ട് ഇടപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് ആരോപിക്കുന്നത്

എ

കഴിഞ്ഞ മാസം ജി

ടി കൌൺസിൽ ഉപ ഭോക്താക്കൾക്കായി വിവിധ നികുതി ഇളവുകൾ നല്കിയതു കൊണ്ടാണ് കൂടുതൽ നികുതി പിരിച്ചെടുക്കാൻ ഗവണ്മെന്റിന് കഴിഞ്ഞതെന്ന് ധനമന്ത്രാലയം പുറത്തിറക്കിയ അറിയിപ്പിൽ വൃക്തമാക്കുന്നു

ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ ഇന്ന് വൈകിട്ട് അഞ്ചിന് കേരളാ പൊലീസ് മുൻ ചാമ്പ്യാൻമാരായ മഹാരാഷ്ട്രയെ നേരിടും ടൂർണമെന്റിൽ സിഐഎസ്എഫ് സിആർപിഎഫ് തമിഴ്നാട് അരുണാചൽ എന്നിവരും പ്രീകാർട്ടറിൽ കടന്നു

ത്രിപുരയെ അഞ്ച് ഗോളിനും സി

എഫ്

തമിഴ്നാട് അരുണാചൽപ്രദേശ് മത്സരം സമനിലയിൽ കലാശിച്ചതോടെ അഞ്ച് പോയിന്റ് നേടിയ ഇരു ടീമുകളും പ്രീകാർട്ടറിൽ പ്രവേശിച്ചു ഇതോടെ പൂൾ ജിയിൽനിന്ന് പ്രബലരായ ഗോവ പുറത്തായി

ഞായറാഴ്ച പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നടക്കും ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൊൽക്കത്തയിലാണ് മൽസരങ്ങൾ നടക്കുന്നത് സിംഗിൾസിൽ ഇന്ത്യയുടെ പ്രജ്നേഷ് ഗുണേശ്വരൻ ഇറ്റലിയുടെ മറ്റിയേവ് ബെറിറ്റിനിയെയും രാംകുമാർ രാമനാഥൻ ആൻഡ്രിയേഴ്സ് സെപ്പിയെയും നേരിടും